ഉപയോഗിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി

രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് ിമന്ത്രി വി

സുനിൽകുമാർ

സംസ്ഥാനമെങ്ങും വിവിധ പരിപാടികൾ

പോളണ്ട് സെനഗലിനോടും റഷ്യ ഇൌജിപ്തിനോടും ഏറ്റുമുട്ടും ടടടടടടടടടടടടടടടട മുഖ്യമന്ത്രി നിയമസഭ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചിട്ടുള്ള പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥർ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിൽ മനുഷ്യാവകാശ ലംഘനം അനുവദിക്കില്ലെന്നും ശ്രീ

പോലീസിൽ ദാസ്യവൃത്തിയും മനുഷ്യാവകാശ ലംഘനവും ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ കെ മുരളീധരനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്

എൽ എ

അതേസമയം സംഭവത്തിൽ ഉയർന്ന ആരോപണങ്ങൾ ഗൌരവര്ത്രമാണെന്നും ഇതിൽ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ക്യാമ്പ് ഫോളോവേഴ്സിന്റെ അവകാശം കവർന്ന് എടുക്കുന്ന സമീന്ദാർമാരായി സംസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചില്ല ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി

നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സുനിൽകുമാർ നിയമസഭയിൽ അറിയിച്ചു

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പങ്കാളിത്ത്തോടെയായിരിക്കും മിഷൻ നിലവിൽ വരിക സംസ്ഥാന്ദ്രത്ത് മായം കലർന്ന വെളിച്ചെണ്ണയുടെ വിൽപ്പന ഗണ്യമായി കുറ്റഞ്ഞിട്ടുണ്ടെന്ന് ശ്രീ

അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന വെളിച്ചെണ്ണയുടെ പരിശോധന ഭക്ഷ്യസുരക്ഷാ വിഭാഗം കർശനമാക്കിയിട്ടുണ്ട് കേരഫെഡിന്റെ കരുനാഗപ്പള്ളി ഫാക്ടറിയുടെ സംസ്കരണശേഷി വർദ്ധിപ്പിക്കാൻ നടപടികൾ പുരോഗമിച്ച് വരുന്നതായും മന്ത്രി അറിയിച്ചു

സുനിൽകുമാർ സംസ്ഥാനത്ത് നീരയുടെ വിപണി വില നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി വി

നീരയ്ക്ക് പൊതുവായ ഒരു ബ്രാന്റ് നാമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായും മന്ത്രി അറിയിച്ചു

ജലീൽ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന പരിധിയിൽ സമയബന്ധിതമായി ആധുനിക ശ്മശാനങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ

ഇതിനായി കിഫ്ബിയുടെ സഹായത്തോടെ സ്പെഷ്യൽ വെഹിക്കിൾ പർപ്പസ് രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു

ശൈലജ കോട്ടയം മെഡിക്കൽ ് കോളേജ് സ്ഥിതിചെയ്യുന്ന ആർപ്പൂക്കര പഞ്ചായത്തിൽ ആധുനിക ശ്മശാനം സ്ഥാപിക്കാൻ ധാരണയായതായി മന്ത്രി കെ

ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായ പി

ദാസിന്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെയാണ് വായന പക്ഷമായി ആചരിക്കുന്നത് വായനാ പക്ഷാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും വായനാ ദിനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ ആകാശവാണിയോട്

പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗവർണ്ണർ പി സദാശിവം നിർവ്വഹിച്ചു

ഗണേഷ്കുമാർ വാഹനം കടന്നുപോകുന്നത് സംബ്ന്ധിച്ച തർക്കത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഇരുവിഭാഗവും സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംഭവത്തെ തുടർന്ന് അഞ്ചൽ സി

യെ സ്ഥലം മാറ്റിയെന്നും പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായി ടി സതികുമാറിനെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു

കൊച്ചിയിൽ ലീലാ മേനോൻ അനുസ്മരണം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

ട്ട ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഏഷ്യൻ പ്രതീക്ഷയായ ജപ്പാൻ ഇന്നിറങ്ങും

എല്ലാ ടീമുകളുടെയും ആദ്യ മൽസരങ്ങൾ ഇന്ന് പൂർത്തിയാകും

കേന്ദ്ര ആയുഷ് മന്ത്രാലയവും സംസ്ഥാന ടൂറിസം വകുപ്പും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്

എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ ഇന്ന് തീരുമാനിക്കും ഇന്ന് വൈകിട്ട് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് ജില്ലാ സെക്രട്ടറിയെ നിശ്ചയിക്കുക

വൈകിട്ട് പടിപൂജ ഉണ്ടാകും

ട്ടടടടടടടടടടടടടടട ജന്റർസ്കൂൾ ലിംഗനീതി ഉറപ്പാക്കുന്നതിനായി എല്ലാ ജില്ലാ ആസൂത്രിത സമിതികളുടെയും നേതൃത്വത്തിൽ ജന്റർ റിസോഴ്സ് സെന്റർ ജാഗ്രതാ സമിതി ജന്റർ ഡെസ്റ്ക് എന്നിവ രൂപീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് നിർദ്ദേശ് നൽകിയതായി മന്ത്രി കെ

തൃശൂർ കിലയ്യൂടെ ആഭിമുഖ്യത്തിൽ ജന്റർ സ്കൂൾ ഫോർ ലോക്കൽ ഗ്ദ്ധ്വേണ്ൻസ് രൂപീകരിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗ്മിക്കുന്നതായി മന്ത്രി പറഞ്ഞു